പ്രധാന മന്ത്രി നരേന്ദ്ര മോദി നാളെ ലോക സുസ്ഥിര വികസന ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യും

കേരളത്തിൽ ഇന്നലെ കൂടുതൽ പേർക്ക് കോവിഡ് രോഗമുക്തി

ഇന്ത്യ ഇന്ന് രണ്ടാം ഇന്നിങ്സ് പുനഃരാരംഭിക്കും

ഐ എസ്

സി ഗോവ മത്സരം സമനിലയിൽ

നമ്മുടെ പൊതുഭാവി പുനർനിർവ്വചിക്കുക എല്ലാവർക്കും സുരക്ഷിതമായ പരിസ്ഥിതി എന്നതാണ് ഇത്തവണത്തെ പ്രതിപാദൃ വിഷയം

കാലാവസ്ഥാ വൃതിയാനത്തിനെതിരായ പോരാട്ടത്തിൽ സർക്കാരുകൾ പ്രമുഖ വൃവസായികൾ അക്കാദമിക വിദഗ്ദ്ധർ ശാസ്ത്രജ്ഞർ യുവാക്കൾ തുടങ്ങിയവരെ ഒരു വേദിയിൽ കൊണ്ടുവരികയാണ് ഉച്ചകോടിയുടെ ലക്ഷ്യം

മുഹമ്മദ് ്ളൂർഫ്യാൻ അലി പപ്പുവ ന്യൂഗിനിയ പ്രധാനമന്ത്രി ജെയിംസ്ട് മറ്റാപ്പെ മാലദ്വീപ് പീപ്പിൾസ് മജ് ലിസ് സ്പീക്കർ മുഹമ്മദ്ദ് ദൃഷീദ് ഐക്യരാഷ്ട്ര സഭ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ അമിന ട്ട്ജി മുഹമ്മദ് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ തുടങ്ങിയവ്ടർ ഉച്ചകോടിയിൽ പങ്കെടുക്കും

പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് ബൈഡന് മോദി ആശംസകൾ നേർന്നു പ്രാദേശിക പ്രശ്നങ്ങളും പരസ്പരം പങ്കിടുന്ന മുൻഗണനാ വിഷയങ്ങളും ഇരുനേതാക്കളും ചർച്ച ചെയ്തു

കാർഷിക നിയമങ്ങൾക്കെതിരായ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് കഴിഞ്ഞ ഒരാഴ്ചയായി സഭ തടസപ്പെട്ടിരുന്നു ചർച്ച തുടർന്ന ബിജെപി അംഗം ലോക്കറ്റ് ചാറ്റർജി കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നരേന്ദ്ര മോദി സർക്കാരിന്റെ നേതൃത്വത്തെ പ്രശംസിച്ചു

കർഷക സമൂഹത്തിന് ക്ടർ ക്ടാരണവശാലും ബുദ്ധിമുട്ട് ഉണ്ടാക്കരുതെന്നും അത്യ്ക്കാണ്ടു തന്നെ കർഷകനിയമങ്ങൾ ഉടൻ പിന്റവ്ലിക്കണമെന്നും ഡി

കെ നേതാവ് ടി

പി പ്രതാപ്രാവു ജാദവ് ജെ

യു അംഗം രാജീവ് രഞ്ജൻ ് സിംഗ് കോൺഗ്രസിലെ മനീഷ് തിവാരി തുടങ്ങിയവരും ചർച്ചയിൽ പങ്കെടുത്തു

സഭയുടെ അന്തസ്സ് നിലനിർത്തേണ്ടത് ഓരോ അംഗത്തിന്റെയും കടമയാണെന്നും സഭയുടെ പാരമ്പര്യം പാലിക്കപ്പെടണമെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നിർത്തിവച്ച സഭ അഞ്ച് മണിക്കുശേഷം വീണ്ടും സമ്മേളിച്ചപ്പോൾ പ്രതിപക്ഷാംഗങ്ങൾ വീണ്ടും മുദ്രാവാക്യം മുഴക്കി രംഗത്തെത്തി അതിനിടെ ചോദ്യോത്തരവേള ആരംഭിക്കുകയാണെന്ന് സ്പീക്കർ അറിയിച്ചെങ്കിലും പ്രതിപക്ഷത്തിന്റെ തുടർച്ചയായ ബഹളത്തെ തുടർന്ന് സഭ പിരിയുകയായിരുന്നു ന്യൂസ് ഡെസ്ക് ആകാശവാണി

കൂടാതെ അടൽ ഭൂജൽ യോജന സ്വച്ഛ് ഭാരത് മിഷൻ ഗ്രാമീൺ ജൽ ജീവൻ മിഷൻ തുടങ്ങിയ പദ്ധതികൾക്കായും പതിനഞ്ചാമത് ധനകാര്യ കമ്മീഷൻ തുക അനുവദിച്ചതായി അറിയിപ്പിൽ പറയുന്നു

വണ്ടലൂർ മുതൽ നെമിലിച്ചേരി ഷ്രെയുള്ള പദ്ധതിയുടെ ഒന്നാം ഘട്ടം ആറ് വർഷ്ടം മുൻപ് പൂർത്തിയാക്കിയിരുന്നു

ഉച്ചയ്ക്ക് പട്നയിൽ രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ ഫഗു ചൌഹാൻ പുതിയ മന്ത്രിമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കും

ഹിന്ദുസ്ഥാനി അവാം മോർച്ചയ്ക്കും വികാസ് ശീൽ കിസാൻ പാർട്ടിയ്ക്കും ഓരോ മന്ത്രിമാരാണുള്ളത്

ഭാരത രത്ന ജേതാക്കളായ സച്ചിൻ ടെൻഡുൽക്കർ ലതാ മങ്കേഷ്ക്കർ എന്നിവരുടെ ട്വിറ്റർ സന്ദേശങ്ങളിൽ അന്വേഷണം നടത്തുന്നത് അപലപനീയമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വാക്സിൻ കുത്തിവയ്പ്പ് കേന്ദ്രങ്ങളൊരുക്കിയത്

ഇവയുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്

നേരത്തെ ഇന്ത്യയുടെ ആർ അശ്വിനാണ് ഇംഗ്ലണ്ടിന്റെ ആറ് വിക്കറ്റ് വീഴ്ത്തിയത് ജസ്പ്രീത് ബുംറ ഇഷാന്ത് ശർമ്മ എന്നിവർ ഓരോ വിക്കറ്റ് വീതമെടുത്തു

ആഴ്ചകൾക്കുള്ളിൽ രാജ്യം പൊതുതെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന പശ്ചാത്തലത്തിലാണിത്

വഞ്ചന വിശ്ചാസ ലംഘനം കൈക്കൂലി തുടങ്ങിയ ആരോപണങ്ങളാണ് നെതന്യാഹുവിന് മേൽ ചുമത്തിയിട്ടുള്ളത്

എങ്കിലും രോഗവ്യാപനവും ജനിതകമാറ്റം വന്ന വൈറസിന്റെ സാന്നിദ്ധ്യവും ആശങ്ക ഉയർത്തുകയാണ്